ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ സമരം പരാ ജയമല്ലെന്ന് സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻ പിള്ള

വയനാട്ടിലെ കുരങ്ങുപനി നേരിടാൻ ഇന്ന് അടിയന്തരയോ ഗം

രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാലറ്റ് പേപ്പർ യുഗ ത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വ്യക്തമാക്കി

ഇ വി എം ഹാക്ക് ചെയ്യപ്പെട്ടെന്ന സെയ്ദ് ഷൂജയുടെ പരാ മർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ന്യൂഡൽഹിയിൽ സി ഇ സിയുടെ പ്രതികരണം മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇ വി എം സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു സിബിഐ ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതിന് ഉന്നതാധി കാര സമിതിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ പ്രതിപക്ഷ പ്രതിനിധി മല്ലികാർജ്ജുൻ ഖാർഗെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗൊയ് എന്നിവരാണ് സമിതി അംഗങ്ങൾ

നാഗേശ്വർ റാവുവിന്റെ ഇടക്കാല സിബിഐ ഡയറക്ടർ നിയമനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്നാണ് പിൻമാറ്റം നാഗേശ്വർ റാവുവിന് താൽക്കാലിക ചുമതല നൽകി യത് സിക്രി ഉൾപ്പെട്ട ഉപസമിതി ആയിരുന്നതിനാലാണ് പിന്മാറ്റ മെന്നാണ് സൂചന ഇതേ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗൊയും പിൻമാറിയിരുന്നു നേരത്തെ അലോക് വർമ്മയെ സിബിഐ ഡയറക്ടർ സ്ഥാനത്തു നിന്ന് മാറ്റിയ സമിതി യോഗത്തിൽ ജസ്റ്റിസ് സിക്രി പങ്കെടുത്തിരുന്നു പട്ടികജാതി പട്ടികവർഗ നിയമഭേദഗതി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു നിയമഭേദഗതിയും പുനഃപരിശോധനാ ഹർജികളും ഒന്നിച്ചു വാദം കേൾക്കണമെന്ന ആവശ്യം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗൊയ് പരിഗണിക്കും സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ പുരോഗമിക്കുന്നതായി എ ഐ സി സി ജനറൽ സെക്ര ട്ടറി മുകുൾ വാസ്നിക് തിരുവനന്തപുരത്ത് അറിയിച്ചു അതത് കമ്മിറ്റികളുടെ നിർദേശം പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി കളെ തീരുമാനിക്കുകയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഒരോ മണ്ഡലത്തിലും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി പരമാവധി സീറ്റ് നേടുകയാണ് യുഡിഎഫിന്റെ ലക്ഷ്യമെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഉമ്മൻചാണ്ടി ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്നും എം എൽ എമാർ മത്സരിക്കേണ്ടെന്ന് ഹൈക്കമാന്റ് തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപു രത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി കോർ കമ്മിറ്റിയോഗം തൃശൂരിൽ തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും പ്രധാനമന്ത്രി യുടെ കേരളാ സന്ദർശനവും യുവമോർച്ച റാലിയും യോഗം ചർച്ച ചെയ്യും ശബരിമലയിലെ സ്ത്രീപ്രവേശന വിഷയത്തിൽ ബി ജെ പിയുടെ നിരാഹാരസമരം പരാജയമാണെന്ന് പറയുന്നവർ കാര്യ ങ്ങൾ ശരിയായി ഗ്രഹിക്കാത്തവരാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻ പിള്ള തൃശൂരിൽ പറഞ്ഞു ലോക ത്തിന് മുന്നിൽ ശബരിമല വിഷയം എത്തിക്കുന്നതിൽ ബി ജെപി വിജയിച്ചുവെന്നും ജനങ്ങളെ ബോധവത്ക്കരിക്കുന്നതിനാണ് സമരം ചെയ്യുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

വിദേശത്ത് രൂപീകരിച്ച സംഘാട്ടക സമിതിയാണ് പ്രവർത്ത നങ്ങളുടെ ചെലവ് തുക കണ്ടെത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പണം ധൂർത്തടിക്കുന്നുവെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാ ണെന്നും സ്പീക്കർ വ്യക്തമാക്കി കേരളത്തിലെ മുഴുവൻ പൊതുമേഖല സ്ഥാപനങ്ങളുടെയും പ്രവർത്തന അവലോകന യോഗം ഇന്ന് വൈകീട്ട് മൂന്നിന് തൈക്കാട് ഗവണമെന്റ് ഗസ്റ്റ്ഹൌസിൽ നടക്കും വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജനും ഓരോ സ്ഥാപനത്തിന്റെയും എംഡിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും

ഈ സാമ്പത്തിക വർഷത്തിൽ നടന്ന മൊത്തം ഇടപാടുകളും പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തും

ശ്രീലങ്കൻ അഭ യാർത്ഥി കുടുംബങ്ങളും തമിഴ്നാട്ടുകാരുമാണ് ബോട്ടിലുള്ളത് സ്ത്രീകളും കുട്ടികളുമടങ്ങിയ സംഘം സ്വന്തം താത്പര്യ പ്രകാ രമാണ് പുറപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്

ബോട്ട് കണ്ടെത്താൻ നാവികസേനയും തീരസംരക്ഷണ സേനയും തെരച്ചിൽ തുടരുകയാണ് വയനാട്ടിൽ കുരങ്ങുപനി നേരിടാൻ കലക്ടർ അടിയന്തര യോഗം വിളിച്ചു കഴിഞ്ഞ ദിവസം രണ്ടു പേരിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മുൻകരുതൽ നടപടികളെടു ക്കാൻ ഇന്ന് യോഗം ചേരുന്നത് പനി ബാധിച്ചവരുടെ സ്ഥിതി ഗുരുതരമല്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു കേന്ദ്രഗവൺമെന്റ് നടപ്പാക്കിയ സാമ്പത്തിക സംവരണം ഭര ണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ജെ ചെലമേശ്വർ മുംബൈയിൽ അഭിപ്രായപ്പെട്ടു സാമൂ ഹിക വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകാനാണ് ഭരണഘടന അനുവദിക്കുന്നതെന്ന് അദ്ദേഹം മുംബൈ ഐ ഐ ടിയിൽ അംബേദ്ക്കർ മെമ്മൊറി യൽ പ്രഭാഷണം നടത്തവെ പറഞ്ഞു രാജ്യത്തെ സ്കൂൾ സിലബസ് പകുതിയായി കുറച്ച് വിദ്യാർത്ഥികളുടെ അമിത പഠനഭാരം ഒഴിവാക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ പറഞ്ഞു കായിക പ്രവർത്തനങ്ങൾക്കും ജീവിത നൈപുണ്യ വിദ്യാഭ്യാസത്തിനും സമയം ലഭിക്കാനാണിത്

വിദർഭ യുടെ ഇന്ത്യൻ താരം ഉമേഷ് യാദവിന്റെ പന്തുകളാണ് കേരള ത്തിന്റെ ബാറ്റിംഗ് നിരയെ തകർത്തത് ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ബേപ്പൂർ കോഴിക്കോട് ടൂറിസ്റ്റ് ബോട്ട് സർവ്വീസിന് റിപ്പബ്ലിക് ദിനത്തിൽ തുടക്കമാകും കേരളാ ഷിപ്പിംഗ് ആന്റ് ഇൻലാന്റ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ടൂറിസ്റ്റ് ഫെറി ബോട്ട് ക്സിയോപാട്രയാണ് ബേപ്പൂരിൽ കടൽയാ ത്രക്ക് തയ്യാറെടുക്കുന്നത് മലബാറിൽ ആദ്യമായാണ് ഇത്തര ത്തിൽ ടൂറിസം ബോട്ട് സർവ്വീസ്

ബേപ്പൂർ പുലിമുട്ട് മറീന ജട്ടിയിൽ ആരംഭിച്ച് കോഴിക്കോട് വെള്ള യിൽ അവസാനിക്കുന്ന രീതിയിലാണ് സർവ്വീസ് ശനിയാഴ്ച മന്ത്രി എ കെ ശശീന്ദ്രൻ ബേപ്പൂരിൽ സർവ്വീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും ബന്ധുനിയമന വിവാദത്തിൽ ഉൾപ്പെട്ട് മന്ത്രി കെ ടി ജലീൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണനെ ഭീഷണിപ്പെടുത്തിയത് മറ്റൊരു ബന്ധു നിയമനത്തിന്റെ പേരിലാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആരോപിച്ചു തദ്ദേശ വകുപ്പിന് കീഴിലെ ഇൻഫർമേ ഷൻ കേരളാ മിഷനിൽ കോലിയക്കോട് കൃഷ്ണൻ നായരുടെ ബന്ധുവിന് നിയമനം നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് ഭീഷണി പ്പെടുത്തിയതെന്ന് ഫിറോസ് കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറ ഞ്ഞു തിരുവനന്തപുരം സിറ്റി പോലീസ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ കോബ്രയിൽ നിരവധി പിടികിട്ടാ പ്പുള്ളികളും ഗുണ്ടകളും അറസ്റ്റിലായി

കൊലപാതക കേസുകളിൽ പ്രതികളായവരുടെ അടക്കം വിവരശേഖരണം നടത്തി കരുതൽ അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ ആരംഭിച്ചതായും സ്ഥിരം പ്രതിക ളായവരെ നിരീക്ഷിക്കുന്നതായും സിറ്റി പൊലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ അറിയിച്ചു

കൊല്ലം കോർപ്പറേഷൻ സൂര്യ ചാപ്റ്ററുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സംഗീതോത്സവത്തിന് തുടക്കമായി മുതിർന്ന കർണാടക സംഗീതജ്ഞ ഗോമതിയമ്മാൾ പരിപാടിക്ക് തിരിതെളിച്ചു തുടർന്ന് വയലിനിസ്റ്റ് ബാലഭാസ്കറിന് ആദരാഞ്ജലിയർപ്പിച്ച് സ്റ്റീഫൻ ദേവസി മ്യൂസിക്കൽ ഫ്യൂഷൻ അവതരിപ്പിച്ചു വൈകിട്ട് ടൌൺഹാളിൽ ഒ എൻ വി കുറുപ്പിന്റെയും ഉമ്പായിയുടെയും സ് മരണയിൽ ഒ എൻ വിയുടെ ചെറുമകൾ അപർണ രാജീവ് ഗസൽസന്ധ്യ അവതരിപ്പിക്കും കോട്ടയം പുനലൂർ കെവിൻ വധക്കേസിൽ ജില്ലാ അഡീഷ ണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പാദം തുടങ്ങും മുഴുവൻ പ്രതികളും ഹാജരാകണമെന്ന് കോടതി നിർദേശിച്ചിട്ടുണ്ട് പ്രണ യിച്ച് വിവാഹം കഴിച്ച കെവിനെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടു പോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്

വീട് പൂർണമായി തകർന്ന വർക്കും വീടും സ്ഥലവും പൂർണമായി നഷ്ടപ്പെട്ടവർക്കും വീട് നിർമിച്ചു നൽകുന്നതിന് പ്രളയാനന്തര പുനർനിർമാണ പദ്ധതിയിൽ പ്രത്യേക സ്കീമുകൾ ജില്ലയിൽ നടപ്പിലാക്കിവരികയാണ് സംസ്ഥാന ജൈവവൈവിധ്യ കോൺഗ്രസ് മറ്റന്നാൾ തലശ്ശേ രിയിൽ ആരംഭിക്കും ഗവൺമെന്റ് ബ്രണ്ണൻ കോളെജിൽ നട ക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യവിഷയം കാലാവസ്ഥ വ്യതിയാ നവും ജൈവ വൈവിധ്യത്തിന്റെ പുനരുജ്ജീവനവും എന്നതാ ണ്

ഇതാദ്യമായാണ് സംസ്ഥാനത്ത് ജൈവവൈവിധ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി വിപു ലമായ പ്രദർശനമൊരുക്കും മികച്ച അധ്യാപകനും നാടക പ്രവർത്തകനുമായിരുന്ന എം ജിയുടെ സ്മരണക്കായി ഏർപ്പെടുത്തിയ ചലച്ചിത്ര നാടക പ്രതിഭാ പുരസ്കാരങ്ങൾ നടുവണ്ണൂരിൽ നാളെ സമ്മാനിക്കും

സിനിമാ നാടക രംഗങ്ങളിൽ ശ്രദ്ധേയരായ രമേശ് കാവിൽ സാവിത്രി ശ്രീധരൻ സരസ ബാലുശ്ശേരി ദേവ്ദർശൻ എന്നിവരെ ആദരിക്കും സംവിധായകൻ സ്ക്കരിയ മുഖ്യാതിഥിയായി പങ്കെ ടുക്കുന്ന പരിപാടിയിൽ ചക്കരപ്പന്തൽ എന്ന ഒറ്റയാൾ നാടകവും ഗസൽ പരിപാടിയും അരങ്ങേറും

മുതുകുറ്റി ചീരൻ പീടികയിൽ രാവിലെ യായിരുന്നു അപകടം ചക്കരക്കൽ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മിനി ബസ്സാണ് മറിഞ്ഞത് അപകടത്തിനിടെ സ്കൂട്ടർ യാത്രക്കാരിക്കും പരിക്കേറ്റു പരിക്കേറ്റവരെ ചക്കരക്കല്ലിലെയും കണ്ണൂരിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ബസ്സു നിറയെ കുട്ടികളുണ്ടായിരുന്നതായാണ് വിവരം രാജ്യത്ത് തീരസംരക്ഷണം ഉറപ്പു വരുത്താൻ നാവികസേന യുടെ ദ്ദിദിന അഭ്യാസമായ സി വിജിൽ പൂർത്തിയായി

ആദൃമായാണ് ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ ഇത്രയും വിപുലമായ അഭ്യാസ പ്രകടനം നടത്തുന്നത്

ഭൂഗർഭ കേബിളു കളിലോ അനുബന്ധ ഉപകരണങ്ങളിലോ പൊതു ജനങ്ങൾ സ് പർശിക്കരു തെന്ന് അസിസ്റ്റന്റ് എഞ്ചി നീയർ അറിയിച്ചു